പ്രധാനമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും

സാഹചര്യത്തിൽ നിയന്ത്രണ്ടങ്ങൾ ്കർശനമാക്കി

എ്എസ്

സി പ്ലസ് ടു ന് പരീക്ഷകൾക്ക് ഇന്ന് തുട്ക്കം

കൊലപാതകത്തെ തുടർന്നുള്ള സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വിളിച്ച സർവ്വകക്ഷിയോഗം യു ഡി എഫ് ബഹിഷ്ക്കരിച്ചു

കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധൃത

ചെന്നൈയിൽ തുടക്കം

വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വാക്സിൻ യജ്ഞ നടപടികൾ വിലയിരുത്തും

രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം വിവിധ ഭാഗങ്ങളിൽ പടരുന്ന സാഹചര്യത്തിൽ അത് തടയാൻ വേഗത്തിലും നിർണ്ണായകവുമായ നടപടികൾ എടുക്കണമെന്ന് ശ്രീ നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരുന്നു

പ്രെറ്സിനെ കീഴടക്കാനുള്ള മാർഗ്ഗങ്ങളിലൊന്നാണ് പ്ലാക്സിൻ സ്വീകരിക്കൽ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വ്ാക്സിൻ സ്വീകരിക്കുന്നതിന് അർഹരായവർ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് കോവിൻ പോർട്ടലിന്റെ ലിങ്ക് പങ്കുവച്ച് പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു

പൊതുസമൂഹം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാനത്തുടനീളം പൊലീസ് പരിശോധന കർശനമാക്കും

തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോവിഡ് വ്യാപനം രൂക്ഷമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് എല്ലാ പോളിങ് ഏജന്റുമാർക്കും കോവിഡ് പരിശോധന നടത്തും കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയമിക്കാനും സർക്കാർ തീരുമാനിച്ചു ഇതര സംസ്ഥാനക്കാർക്കുള്ള ഏഴു ദിവസത്തെ രോഗനിരീക്ഷണം തുടരും തദ്ദേശസ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയെ പ്രതിരോധ്മ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനും ചീഫ് സെക്രട്ടറി ഇന്ന്ലെ വിളിച്ച ഉന്നതതല യോഗം തീരുമാനിച്ചു

അർഹരായ നൂറിലേറെ പേർ തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളിലാണ് വാക്സിൻ നൽകേണ്ടത്

യോഗം യു ഡി

കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ പിടികൂടാൻ പോലീസ് അമാന്തം കാണിക്കുകയാണെന്നും അക്രമം നടത്തിയെന്ന പേരിൽ ലീഗ് പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചതായും യു ഡി എഫ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു

സ്ഥലത്ത് വൻ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്

ഐ പലിശനിരക്ക് ് ഭവന വായ്പകളുടെ പലിശ്ര്യനീർക്കുകൾ വർദ്ധിപ്പിച്ചുവെന്ന് മാധ്യമങ്ങളിൽ വരുന്ന റ്റിപ്പ്പോർട്ടുകൾ ശരിയല്ലെന്ന് എസ്

വനിതകൾക്ക് നൽകുന്ന പ്രത്യേക പലിശനിരക്ക് തുടരും

ശ്രീരാമകൃഷ്ണൻ ഇന്ന് കസ്റ്റംസിന് മുന്നിൽ ഹാജരാകില്ല

പിന്നീട് കഴിഞ്ഞമാസം അവസാനമാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്

ഡി യ്ക്കെതിരായി ക്രൈം ബ്രാഞ്ച് കേസെടുത്ത സാഹചര്യത്തിൽ ഇ ഡി സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിച്ച കേസിലെ മൊഴികൾ ഹർജിക്കൊപ്പം ഹാജരാക്കിയതിന് പിന്നിൽ ഇഡി യ്ക്ക് ഗൂഢലക്ഷ്യമുണ്ടെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ വൃക്തമാക്കി

ജി പി എസ്

ഡിയ്ക്കെതിരായ അന്വേഷണം പ്രാരംഭ ഘട്ടത്തിലാണെന്നും ഇ ഡിയുടെ ഹർജികൾ അപക്വമെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു സർക്കാർ ഭാഗം വാദം തുടരുകയാണ്

അസംഘടിത മേഖലയെ സ്ട്രബ്ദ്ധിച്ച വാർഷിക സർവേയുടെ രണ്ടാം ഘട്ടമാണിത് സർപ്പ് അടുത്ത വർഷം മാർച്ച് വരെ തുടരും

എസ് എൽ

നാളെ മുതലാണ് വൊക്കേഷണൽ ഹയർ സെക്കന്ററി പരീക്ഷ

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷ

എസ് എൽ സി പരീക്ഷ

എസ് എൽ സി പരീക്ഷ അവസാനിക്കും

എസ് എൽ

പരീക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു ആകാശവാണി വാർത്തകളോട്

എസ് എൽ

കവാടത്തിലും ക്സാസ് മുറികൾക്ക് മുന്ന്ടിലും വെള്ളവും സോപ്പും കരുതണം സാമൂഹ്യ അകലം പൂാലിക്കണം

പേന ഇൻസ്ട്രുമെന്റ് ബ്ലോക്സ് മുതലായവ പരസ്പരം കൈമാറാൻ അനുവദിക്കില്ല ഉത്തരക്കടലാസിന്റെ അഡീഷണൽ ഷീറ്റ് ഹാൾടിക്കറ്റ് എന്നിവയിൽ ഇൻവിജിലേറ്റർമാർ ഒപ്പുവയ് ക്കേണ്ട മോണോഗ്രാം പതിച്ച ഉത്തരക്കടലാസുകളുടെ ആദ്യ ഷീറ്റിൽ മാത്രം ഇൻവിജിലേറ്റർമാർ ഒപ്പിട്ട് നൽകിയാൽ മതിയാകും

എൽ സി പ്ലസ് ടു വി എച്ച്

ഇ പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസ നേർന്നു കോവിഡ് പ്രതിന്ധന്ധി കാരണമുണ്ടായ സമ്മർദ്ദങ്ങളെ മാറ്റിവച്ച് ആത്മവിശ്വാസത്തോടെ വേണം പരീക്ഷയെ സമീപിക്കാൻ

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്

വിദ്യാർത്ഥികളും ആ നിയന്ത്രണങ്ങളോട് പൂർണമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് മലപ്പുറം ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും ഇടിയോടു കൂട്ടിയ് മീഴയ്ക്ക് സാധൃതയുണ്ട്

ചെന്നൈയിൽ പ്രാരംഭ മീ്സരത്തിൽ നിലവിലെ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും മുംബൈ ചെന്നൈ ഡൽഹി അഹമ്മദാബാദ് കൊൽക്കത്ത ബംഗളുരു എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുക അടച്ചിട്ട വേദികളിൽ കാണികളില്ലാതെയാവും മത്സരങ്ങൾ

ഇത്തവണ ഐ